ഉയർന്ന പോളിങ് കോഴിക്കോട് ജില്ലയിൽ കുറവ് പത്തനംതിട്ടയിൽ

ത ഉയർന്ന പോളിങ് എൻ ഡി എ ക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ

ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി സംവദിക്കും

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് നിയമസഭാതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്

രുര വോട്ടെടുപ്പിൽ ഉന്നത ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ച എല്ലാവരേയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു

മതേതര ജനാധിപത്യ പാരമ്പര്യത്തെ കാക്കുന്നതിനും വികസനത്തിന്റെ ജനകീയ മാതൃകയെ കരുത്തുറ്റതാക്കുന്നതിനുമായി കൂടുതൽ ഇടത്പക്ഷത്തോടൊപ്പം നിന്നവർക്ക് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു ദേഴ ഐതിഹാസിക വിജയം നേടി യുഡിഎഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഇടതുമുന്നണി ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വിധി എഴുതുന്നതാണ് ഇന്നലെ കണ്ടതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു വ്യാപകമായി കള്ളവോട്ടു ചെയ്യുന്നതിന് വോട്ടർ പട്ടികയിൽ ഇടതുമുന്നണിയും സിപിഐഎം ഉം നടത്തിയ കൃത്രിമം യുഡിഎഫ് പിടികൂടുകയും യുഡിഎഫ് പ്രവർത്തകർ ജാഗ്രത പാലിക്കുകയും ചെയ്തതിനാൽ കള്ളവോട്ട് വലിയതോതിൽ തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു രംഭ സംസ്ഥാനത്തെ ഉയർന്ന പോളിംങ് എൻഡിഎ ക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

എൻഡിഎ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും എൽഡിഎഫ് ന്റെയും യുഡിഎഫ് ന്റെയും വോട്ടു വിഹിതവും സീറ്റും കുറയുമെന്നും സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് അവകാശപ്പെട്ടു രുമ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ റീ പോളിങ് നടത്തണമെന്ന് യു ഡി

ആവശ്യപ്പെട്ടു യഥാർഥ ജനഹിതം അറിയാൻ നിഷ്പക്ഷവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കി റീ പോളിങ് നടത്തുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നു ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു രും കാസർകോട് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കനിയാല ബൂത്തിൽ ക്യൂവിലുണ്ടായിരുന്ന വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന പ്രസിഡന്റുമായ കെ

കൊണ്ടോട്ടിയിലാണ് ഏറ്റവും ഉയർന്ന പോളിങ്

പൊന്നാനിയിലും വേങ്ങരയിലുമാണ് കുറവ് പോളിങ്

രംഭ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വൈക്കത്തും കുറവ് കടുത്തുരുത്തിയിലുമാണ്

ഇദ്ദേഹത്തിന്റെ സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് പൊലീസ് പ്രദേശത്ത് കനത്ത ജാഗ്രത പുലർത്തി വരുന്നു രും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടന്ന അസമിലും പശ്ചിമബംഗാളിലും കനത്ത പോളിംഗ്

ഇന്നലത്തെ വോട്ടെടുപ്പോടെ കേരളം തമിഴ്നാട് പുതുച്ചേരി അസം എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി

കൊവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷാ പേ ചർച്ചയിൽ ഇതാദ്യമായി വെർച്ച്വലായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുക മാനസിക സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതുന്നതിനും തയ്യാറെടുക്കുന്നതിനും ആശയങ്ങളും നിർദ്ദേശങ്ങളും പരീക്ഷ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി പങ്കുവെയ്ക്കും

നീതിയുക്തവും ആരോഗ്യപൂർണവുമായ ഒരു ലോകം പടുത്തുയർത്താം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം

ദേ ലോകദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഏഴു കേന്ദ്രങ്ങളിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ നടക്കും

ജീവനക്കാരും കൊവിഡ് വാക്സിൻ കുത്തിവെയ്പ് എടുക്കണമെന്ന് കേന്ദ്രം ഉത്തരവിറക്കി

വാക്സിൻ എടുത്ത ശേഷവും കൊവിഡ് മാനദണ്ധങ്ങൾ പാലിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു

പൊതുസ്ഥലങ്ങളിലും വൻതോതിൽ ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലും പ്രവേശനത്തിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചു ഗവണ്മെന്റ് നന്നായി ശ്രമിച്ചിട്ടും കൊവിഡ് കേസുകൾ ഗണ്യമായി വർധിക്കുന്നത് വേദനിപ്പിക്കുന്നതാണെന്ന് ഐഎം എ പറഞ്ഞു കൊവിഡിന്റെ രണ്ടാം തരംഗം ഭയാനകമായി മാറുകയാണെന്നും ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു

രും സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധന